കൂടുതൽ രോഗികൾ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും

കൊറോണ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണ്ട് ആരംഭിച്ചതായും കേന്ദ്രമന്ത്രി

മെക്സിക്കോയിലും ബ്രസീലിലും സ്ഥിതി ഗുരുതരം

മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ആന്ധ്രപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു

കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതിനായി നടത്തിയ പുരുക്ഷ്യണങ്ങളിൽ നിന്നും നല്ല സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്തെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു മഹാമാരിക്കെതിരെ പൂർണമായും വിജയിക്കാൻ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ സാധിക്കുമെന്നും ശ്രീ

കോവാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണത്തിനായി ഐ സി

തിങ്കളാഴ്ച മുതലാണ് പരീക്ഷണം

സി ജി വാക്സിനുകളുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പഠനം നടത്തും

മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നീ ആറ് സംസ്ഥാനങ്ങളിലായിട്ടാകും പഠനം ചെന്നൈയിലുള്ള ഐ സി എം

വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇന്നലെ മാത്രം നാലായിര്ത്തിലധികം പ്രവാസികൾ എത്തിയിട്ടുണ്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസികളുമായി ഇന്ന് ഏഴ് വിമാനങ്ങൾ എത്തിച്ചേരും

നികുതിദായകർക്ക് ഐ

വകുപ്പിൽ ലഭ്യമായ നികുതി സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ എന്നിവ സ്വമേധയാ സമർപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇ ക്യാമ്പയിന്റെ ലക്ഷ്യം

എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വെളിയത്തുനാട് സ്വദേശി കുഞ്ഞുവീരാനാണ് മരിച്ചത്

എന്നാൽ ഇവരുമായി സമ്പർക്കം പുലർത്തിയവരുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണെന്നുള്ളത് ആശ്വാസം പകരുന്നു

ആറ് ലക്ഷത്തിലധികം പേർ മരണമടഞ്ഞു

അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തോടടുക്കുന്നു

രണ്ട് ലക്ഷത്തിലധികം പേർക്കാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചത്

ശേഷാദ്രി ചെന്നൈയിൽ അന്തരിച്ചു

താക്കൂർ പ്രസാദ് സ്മാരക പ്രഭാഷണത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ ശ്രീ രവിശങ്കർ വിവര സംരക്ഷണനിയമം കേന്ദ്രസർക്കാർ കൊണ്ടു വന്നിട്ടുണ്ടെന്നും അത് പാർലമെന്റ് സെലക്ട് കമ്മിറ്റി പരിശോധിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി

ആശൂപത്രികളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡിലെ പകർച്ചവ്യാധി സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

ആരോഗ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ നേതൃത്വം നൽകുന്ന മൂന്നംഗ സംഘം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും